പാകിസ്ഥാനിൽ സിഖ് സമുദായാംഗത്തെ കൊലപ്പെടുത്തിയ സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ വേണമെന്നും ഇന്ത്യ

ഉത്തരേന്തൃയൂടെ വിവിധ്യ് ഭാ്ഗങ്ങളിൽ അതിശൈതൃം മഴയും മഞ്ഞുവീഴ്ചയും രൂക്ഷമായി

്കരാറിലുള്ള ഉടമ്പടികൾ പാലിക്കില്ലെന്ന് ഇറാൻ ഭരണകുടം

നങ്കാന സാഹിബ് ഗുരുദാരയ്ക്ക് സമീപം നടന്ന അക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സിഖ് സമുദായാംഗത്തെ കൊലപ്പെടുത്തിയത് ഇത്തരം സംഭവങ്ങൾ അടിയന്തിരമായി അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനു പകരം പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയം ആവശ്യപ്പെട്ടു

് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ പ്രദർശനമായിരിക്കും ഇതെന്ന് പ്രൂതീരോധ മന്ത്രി രാജ്നാഥ് സിങ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നര്ര്ദ്ര്ദ്മോദി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോളേജിലെ ഇരുവിഭാഗം വിദ്യാർഥികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് അക്രമത്തിൽ കലാശിച്ചത് അക്രമ സംഭവങ്ങൾ അപലപനീയമാണെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി രമേഷ് പൊക്രിയാൽ പറഞ്ഞു സർവകലാശാലയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസ്സിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിദ്യാർത്ഥികൾ മുന്നോട്ടു വരണമെന്നും കേന്ദ്രമന്ത്രി ആഹാനം ചെയ്തു

യു ക്യാമ്പസ്സിൽ വിദ്യാർത്ഥികൾക്കും അദ്ധ്യാപകർക്കും നേരെയുണ്ടായ അക്രമം അപലപനീയമാണെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ പറഞ്ഞു ക്യാമ്പസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അക്രമസംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമായി ശക്തമായ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

അക്രമസംഭവങ്ങളെ ശക്തമായ രീതിയിൽ അപലപിക്കുന്നതായി ബിജെപി ട്വീറ്റ് ചെയ്തു

നാളെ രാവിലെ ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പോകും

രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇപ്പ് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

പാൽ അടിസ്ഥാനമാക്കിയുള്ള മൂല്യവർധിത ഉത്പന്നങ്ങൾ സംസ്ഥാനത്തുണ്ടാകണം ഇത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും വിദേശത്തും വിപണനം നടത്താനും നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫെബ്രുവരിയിൽ സംസ്ഥാനം പാലിന്റെ കാര്യത്തിൽ സ്വയംപര്യാപ്ത കൈവരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി കെ രാജു പറഞ്ഞു

കോട്ടയം ജില്ലാതല പട്ടയമേള വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് സുനിൽകുമാർ

ഹിമാചൽ പ്രദേശിലും ജമ്മു കൾമീരിലും അടുത്ത മൂന്നു ദിവസം മഞ്ഞുവീഴ്ചയും മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഹിമാചൽ പ്രദേശിലെ വിവിധയിടങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്

രാജ്യതല്പസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇപ്പോൾ പെയ്യുന്ന നേരിയ മഴ രണ്ടു ദ്ദീപ്പസത്തിനുള്ളിൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

അനുപ്രയാസ് എന്ന എൻ ജി ഒ യിലൂടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ വികസന കോർപ്പറേഷനാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ഈ സൌകര്യം ഒരുക്കുന്ന ഉത്തരേന്ത്യയിലെ ആദ്യത്തെയും രാജ്യത്തെ അഞ്ചാമത്തെയും റെയിൽവേ സ്റ്റേഷനാണ് ഛണ്ഡീഗഡ് ഈ സൌകര്യം ഉപയോഗിച്ച് കാഴ്ചപരിമിതരായ യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിലെ വിവിധ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു പുറമെ ബ്രെയ്ൽ ടാക്ടൈൽ മാപ്പ് ഉപയോഗിച്ച് എൻക്വയറി സ്റ്റേഷൻ മാസ്റ്റർ കാത്തിരിപ്പ് മുറികൾ ലിഫ്റ്റ് ശുചിമുറി എന്നീ സൌകര്യങ്ങളും ഓഫീസുകളും എളുപ്പത്തിൽ കണ്ടെത്താം

ഇതിന് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം നൽകിയതായി സാംസ്കാരിക മന്ത്രി കെ

ഇന്നലെ തിരുച്ചിറപ്പള്ളിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇറാനിയൻ സൈനികമേധാവി ഖാസിം സുലൈമാനി അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറാന്റെ നടപട്ടി

രാജ്യത്തിന്റെ സാങ്കേതിക ആവശ്യങ്ങൾക്ക് അനുസരിച്ച് യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്ചാപനം യുഎൻ ആണവ നിരീക്ഷണ സമിതിയുമായി സഹകരിക്കാനൂക്ട്ടെഹ്റാനിൽ ചേർന്ന ഇറാനിയൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു

തങ്ങളുടെ മേലുള്ള ഉപരോധ്ങ്ങൾ പിൻവലിച്ചാൽ ആണവ കരാറിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്

ഇതേത്തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിനിടെ ഇറാഖിൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ ജനറൽ സൊലൈമാനിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്നലെ എത്തിയത്

ടോസ് നേടിയി ്ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തെങ്കിലും ഒരു പന്ത് പോലും എറിയാതെയാണ് ഗുവാഹത്തിയിലെ മത്സരം ഉപ്പേക്ഷിച്ചത് മഴ മാറിയെങ്കിലും പിച്ചിലും ഔട്ട് ഫീൽഡിലും ഈർപ്പം നിലനിന്ത്രകാണ് മത്സരം ഉപേക്ഷിക്കാൻ കാരണമായത്